ലക്ഷത്തിലധികം പേർ

കേരളത്തിൽ സമ്പർക്കരോഗ വ്യാപനം വർദ്ധിക്കുന്ന് സാഹചരൃത്തിൽ വിവിധ സ്ഥലങ്ങളിൽ കർശന നിയന്ത്രണം

അശോക് ഗെഹ്ലോട്ട് മന്ത്രിസഭാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി

ജമ്മു കശ്മീരിൽ സുരക്ഷ സേന രണ്ട് ഭീകരരെ വധിച്ചു

അവന്തിപ്പുരയിൽ ഒരു ഭീകരൻ പിടിയിൽ

രോഗവ്യാപനം കൂടിയതിനെതുടർന്ന് കോയമ്പത്തൂരിൽ ഇിന്റ് വൈകിട്ട് അഞ്ച് മുതൽ തിങ്കളാഴ്ച ആറു വരെ സമ്പൂർണ ലോക്ട്സ്ട്ട്ൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്

മരണനിരക്കിലും ഗണ്യമായ കുറവാണ് രേഖപ്പെടുത്തിയത്

ആന്ധ്രപ്രദേശ് ബിഹാർ തെലങ്കാന ഒഡീഷ പശ്ചിമബംഗാൾ അസം കർണാടക ഝാർഖണ്ഡ് ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു

സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർ ആരോഗ്യ സെക്രട്ടറിമാർ തുടങ്ങിയവരുമായി നടത്തിയ വെർച്ചൽ അവലോകന യോഗത്തിലാണ് ക്യാബിനറ്റ് സെക്രട്ടറി പരിശോധനകൾ വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശം നൽകിയത് കോവിഡ് മാർഗനിർദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്ന് ക്യാബിനറ്റ് സെക്രട്ടറി നിർദേശിച്ചു

ദിനംപ്രതിയുള്ള കോവിഡ് അവലോകന യോഗം വീഡിയോ കോൺഫറൻസിംഗ്ഗ് വഴി നടത്തുമെന്നും ശ്രീ

ദൌതൃത്തിന്റെ അടുത്ത ഘട്ടത്തിൽ കൂടുതൽ സർവീസുകൾ നടത്തുമെന്നും വിമാനസർവീസുകളുടെ വിശദാംശങ്ങൾ പിന്നീട് ലഭ്യമാക്കുമെന്നും എയർഇന്ത്യ ട്വിറ്ററിൽ അറിയിച്ചു

കാസർകോട് സ്വദേശിനി പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയാണ് മരണമടഞ്ഞത് പാലക്കാട് കൊല്ലംകോട് സ്വദേശിനി ഇന്ന് പുലർച്ചെ ജില്ലാ ആശിപത്രിയിലാണ് മരിച്ചത് ഇതിനിടെ കീം പരീക്ഷ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു പാലക്കാട് കഞ്ചിക്കോട് സ്വദേശിനിയായ അധ്യാപികയ്ക്ക് കോവിഡ് സ്ഥിരീകരിച്ചു

മഞ്ചേശ്വരം കുമ്പള കാസർകോട് ഹൊസ്ദുർഗ് നീലേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധികളിലാണ് നിരോധനാജ്ഞ

ആകാശവാണി ദൂരദർശൻ വാർത്തകൾ പ്രധാനമന്ത്രിയുടെ കാര്യാലയം വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യൂട്യൂബ് ചാനലിലൂം പരിപാടി തത്സമയം ലഭ്യമാകൂം

ഇന്നലെ തന്നെ പിന്തുണയ്ക്കുന്ന എം എൽ എ മാരോടൊപ്പം മുഖ്യമന്ത്രി രാജ്ഭവനിൽ എത്തി നിയമസഭ സമ്മേളനം ഉടൻ വിളിച്ചു ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു രാജസ്ഥാനിലെ നിലവിലെ സ്ഥിതിഗതികളുടെ അടിസ്ഥാനത്തിൽ നിയമോപദേശം തേടിയ ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനാവൂ എന്ന് ഗവർണർ വ്യക്തമാക്കിയിട്ടുണ്ട് രാജസ്ഥാൻ നിയമസഭയിൽ തൽസ്ഥിതി തുടരാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചതിനു പിന്നാളെയാണ് ശ്രീ

കൃഷ്ണ്ജതിനിടെ സംസ്ഥാനത്ത് ജനാധിപതൃം കശാപ്പ് ചെയ്യുന്നു എന്നാര്രേപിച്ച് കോൺഗ്രസ് ഇന്ന് ജില്ലാ ആസ്ഥാനങ്ങളിൽ പ്രതിഷേധ പരിപാട്ടി സ്ക്ഘടിപ്പിക്കുന്നുണ്ട്

അതിനിടെ ദക്ഷിണ കശ്മീരിലെ അവന്തിപ്പുര മേഖലയിൽ സംയുക്ത സംഘം നടത്തിയ തെരച്ചിലിൽ ഒരു ഭീകരനെ പിടികൂടി

ഇ കോമേഴ്സ് കമ്പനികൾ ലഭ്യമാക്കുന്ന ഉത്പന്നങ്ങളിൽ ഇവ നിർമിച്ച രാജ്യത്തിന്റെ പേര് പ്രദർശിപ്പിക്കുന്നത് ഇനി മുതൽ നിർബന്ധമാക്കി തർക്കങ്ങൾ സമയബന്ധിതമായി പരിഹരിക്കുന്നതിലൂടെ ഉപഭോക്തൃ അവകാശ സംരക്ഷണം ഉറപ്പാക്കുന്നത് നിയമം ലക്ഷ്യമിടുന്നു

വെളിച്ചക്കുറവ് മൂലം ആദ്യ ദിവസത്തെ കളി നേരത്തെ അവസാനിപ്പിക്കുകയായിരുന്നു ജോസ് ബട്ലറുടേയും മികച്ച പ്രകടനമാണ്

എൽ ഭരണ സമിതി അടുത്തയാഴ്ച ് യോഗം ചേർന്ന് അന്തിമ തീരുമാനം എടുക്കും

എ

ഇത്തരം വാസ്തവ വിരുദ്ധമായ സന്ദേശങ്ങളിൽ നിന്ന് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും പി ഐ ബി അഭ്യർത്ഥിച്ചു

കേദാർനാഥ് ബദരിനാഥ് യമുനോത്രി ഗംഗോത്രി എന്നീ നാല് പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കുകയാണ് ഛാർ ദാം തീർത്ഥാടന യാത്രയുടെ ലക്ഷ്യം